എസ് പ്രാഥമിക പരീക്ഷാഫലം പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി ജനങ്ങൾക്ക് അടിസ്ഥാന സൌകര്യങ്ങളൊരുക്കുന്നതിന് കോവിഡ് തടസ്സമാവരുതെന്ന നിലപാടാണ് ഗവണ്മെന്റിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വികസന പ്രവർത്തനങ്ങളോടൊപ്പം ഭക്ഷ്യ സ്വയംപര്യാപ്തത ഉറപ്പു വരുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിലെ വേങ്ങാട് പെരളശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന കീഴത്തൂർ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രുമ സംസ്ഥാനത്ത് കോവിഡ് ബാധയിൽ വർദ്ധന ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് രോഗബാധ റിപ്പോർട്ട് ചെയ്ത ദിനമായിരുന്നു ഇന്നലെ

ഒരാൾ കണ്ണൂർ സ്വദേശിയും

കൂടുതൽ വിവരങ്ങളുമായി ജഷിതകുമാരി

പാലക്കാട്ഇടുക്കി വയനാട് ജില്ലകളിലും സമ്പർക്ക രോഗ ബാധിതരാണ് കൂടുതൽ പത്ത് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഏർപ്പെടുത്തി

കണ്ടെയ്ൻമെന്റ് സോണുകൾ അല്ലാത്ത പ്രദേശങ്ങളിൽ അടുത്തമാസം രണ്ട് വരെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ രാവിലെ ഏഴു മുതൽ രാത്രി ഒൻപത് വരെയും പ്രവർത്തിക്കാം രുദ കോഴിക്കോട് ജില്ലയിൽ തീരദേശ മേഖലയിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യവകുപ്പുമായും തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളുമായും ഫിഷറീസ് വകുപ്പ് സഹകരിച്ചു പ്രവർത്തിക്കുമെന്ന് ഉത്തര മേഖലാ ഫിഷറീസ് ജോയന്റ് ഡയറക്ടർ അറിയിച്ചു

ആദ്യഘട്ടത്തിൽ കോവിഡ് ബാധിതരുടെ തുടർചികിത്സ ഭക്ഷണം മരുന്ന് കൌൺസിലിംഗ് എന്നിവയിലാണ് ഫിഷറീസ് വകുപ്പ് പങ്കാളികളാവുകയെന്നും അദ്ദേഹം പറഞ്ഞു ഈ പദ്ധതി കാസർകോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ദരദ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ക്ലസ്റ്റർ പട്ടികയിൽപ്പെടുത്തി

രോഗികൾ കുറഞ്ഞതിനാൽ നാദാപുരവും ചാലിയവും ക്ലസ്റ്ററിൽ നിന്ന് ഒഴിവായി ദേദ കോവിഡ് വ്യാപനം മൂലം മുടങ്ങിപ്പോയ വനിതാകമ്മീഷൻ അദാലത്തുകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് കോവിഡ് സാഹചര്യം വിലയിരുത്തി തീരുമാനമെടുക്കുമെന്ന് ചെയർപേഴ്സൺ എം

വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കേണ്ടതിനാൽ വനിതാ കമ്മിഷനിലേക്ക് പരാതികൾ രേഖാമൂലം തപാലിലോ സ്കാൻ ചെയ്തോ സോഫ്റ്റ്കോപ്പിയായി ഇ മെയിൽ ആയോ അയയ്ക്കേണ്ടതാണെന്നും ചെയർപേഴ്സൺ അറിയിച്ചു

കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന മറൈൻ ആമ്പുലൻസിന്റെ ഉദ്ഘാടനം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും

അപകടത്തിൽപ്പെടുന്ന പത്ത് പേരെ വരെ പ്രഥമ ശുശ്രൂഷ നൽകി കരയിലെത്തിക്കാൻ സാധിക്കും എറണാകുളം മേഖലയിലെ ആംബുലൻസ് ബോട്ടായ പ്രത്യാശയുടെ നീരണിയിക്കൽ മന്ത്രി ജെ മെഴ്സിക്കുട്ടിയമ്മയും കോഴിക്കോട് മേഖലയിലെ ബോട്ടായ കാരുണ്യയുടെ നീരണിയിക്കൽ ഫിഷറീസ് സെക്രട്ടറി ടിങ്കു ബിസോളും ഇതോടൊപ്പം നിർവഹിക്കും ദേദ തിരുവനന്തപുരം ജില്ലയിലെ ശംഖിലി വനമേഖലയിൽ ഉരുൾ പൊട്ടിയതിനെത്തുടർന്ന് കൊല്ലത്ത് കല്ലടയാറ്റിൽ ചോഴിയക്കോട് ഭാഗത്ത് ജലനിരപ്പുയർന്നു

ജലനിരപ്പും നീരൊഴുക്കും സാധാരണ നിലയിലായതായും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും അധികൃതർ അറിയിച്ചു

അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കൾ വാങ്ങരുതെന്നും വ്യാപാരമേളകൾ ഒഴിവാക്കണമെന്നും നിർദേശമുണ്ട് ഓണത്തോടനുബന്ധിച്ച വ്യാപാര സ്ഥാപനങ്ങൾക്ക് രാവിലെ ഏഴു മുതൽ രാത്രി ഒൻപത് വരെ തുറന്ന് പ്രവർത്തിക്കാം മാർഗനിർദേശങ്ങൾ നടപ്പാക്കാൻ കളക്ടർമാർ വ്യാപാരികളുടെ യോഗം വിളിക്കാനും ഗവൺമെന്റ് നിർദേശിച്ചിട്ടുണ്ട്

ടി കൌൺസിൽ യോഗം ഇന്ന് വീഡിയോ കോൺഫറൻസ് വഴി ചേരും കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം

എസ് ടി നടപ്പാക്കിയത് വഴി സംസ്ഥാനങ്ങൾക്കുണ്ടായ നഷ്ടം നികത്തുന്നത് സംബന്ധിച്ച ഏക അജണ്ടയാണ് യോഗത്തിനുള്ളത്

ടിയിലുള്ള നഷ്ടം നികത്താൻ സംസ്ഥാനങ്ങളെ വായ്പയെടുക്കാൻ അനുവദിക്കണമെന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ നേരത്തെ ധനമന്ത്രാലയത്തെ അറിയിച്ചിരുന്നു

അർഹത ഉണ്ടായിട്ടും വിവിധ കാരണങ്ങളാൽ ആദ്യം തയാറാക്കിയ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ കുടുംബങ്ങൾക്കാണ് വീടിനായി അപേക്ഷിക്കാൻ അവസരം ദേദ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളും സേവനങ്ങളും നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങളെന്ന നിലയിൽ വില്ലേജ് ഓഫീസുകളിലെ പരിമിതികൾ പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ മുഖ്യലക്ഷ്യമെന്ന് മന്ത്രി ഇ

അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി സ്മാർട്ട് പദവിയിലേക്കെത്തിയ കൊട്ടാരക്കര വെളിയം വില്ലേജ് ഓഫീസുകളുടെയും കൊല്ലം കലക്ടറുടെ ചേംബർ കം കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി

മന്ത്രി എം എം മണി ഉച്ചകഴിഞ്ഞ് രണ്ടാം ഘട്ട പട്ടയങ്ങൾ കൈമാറും ദേദ തലശ്ശേരി മാഹി ബൈപ്പാസിനായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ ബീമുകൾ തകർന്നു വീണു

നിട്ടൂരിനടുത്ത് ബാലത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ ബീമുകളാണ് തകർന്നത്

ബീമുകൾ തകർന്ന സംഭവത്തെക്കുറിച്ച് മന്ത്രി ജി സുധാകരൻ റിപ്പോർട്ട് തേടി രദേശ സംസ്ഥാന ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപായി കേരളത്തിലെ മുഴുവൻ റോഡുകളുടെ പുനരുദ്ധാരണവും നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡുകളുടെ നിർമ്മാണവും പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ജി

ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയായ നാല് കിലോമീറ്ററിന്റെയും അതേ പാതയിൽ വിവിധ പ്രവൃത്തികളുടെയും ഉദ്ഘാടനവും ഓൺലൈനിലൂടെ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

നിളയോരത്തെ കനോലി കനാലിന് കുറുകെ പാലത്തിന്റെയും കുണ്ടുകടവ് ജങ്ഷൻ മുതൽ പുളിക്കക്കടവ് വള്ളംകളി പവിലിയൻ വരെ റോഡ് സൌന്ദര്യവൽക്കരിക്കുന്നതിന്റെയും നിർമാണ ഉദ്ഘാടനം മന്ത്രി ജി സുധാകരൻ വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിച്ചു

രുദ ഓണവിപണിയിൽ ന്യായവിലയ്ക്ക് ഉത്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീയുടെ ആയിരത്തോളം ഓണച്ചന്തകൾ സംസ്ഥാനത്ത് ആരംഭിച്ചു